കേരളത്തിൽ തദ്ദേശ തിരിഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട ന് വോട്ടെടുപ്പ് മറ്റന്നാൾട്ട് പ്ര്സ്യപ്രചാരണം ഇന്ന് അവസാനിക്കും കൊട്ടിക്കലാശം ഒഴിപ്പാക്കാൻ നിർദ്ദേശം

പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയേയും മുംബൈ സിറ്റി ഒഡീഷ എഫ് സി യെയും നേരിടും

ഭാവിയിൽ അംഗങ്ങളുടെ വർദ്ധനവുണ്ടാകാനുള്ള സാധൃത കണക്കിലെടുത്താണ് സജ്ജീകരണം ഇതൊടൊപ്പം ലൈബ്രറി വിവിധ സമിതികൾക്കുള്ള മുറികൾ എന്നിവയും സജ്ജീകരിക്കും

കാർഷികോത്പന്നങ്ങൾക്ക് കൂറ്ഞ്ഞ താങ്ങു വില നൽകുന്നത് തുടരുമെന്ന് ചർച്ചയിൽ ഉറപ്പും നൽകിയതായി കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിങ്ങ് മാധ്യമങ്ങ് ളോട് പറഞ്ഞു കർഷകർ സമരം പിൻവലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചുനാൽപതോളം കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായാണ് കേന്ദ്ര മന്ത്രിമാരുടെ സംഘം ഇന്നലെ ചർച്ച നടത്തിയത്

മഹാപരിനിർവൻ ദിവസത്തിന്റെ ഭാഗമായി രാജ്യമൊട്ടാകെ വിവിധ പരിപാടികൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്

ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിര വളപ്പിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുൻപിൽ വിശിഷ്ട അതിഥികളും പാർലമെന്റ് അംഗങ്ങളും ശ്രദ്ധാഞ്ജലി അർപ്പിക്കും കോവിഡ് പശ്ചാത്തല ത്തിൽ ആരും അംബേദ്കറുടെ അന്തൃവിശ്രമ സ്ഥലമായ ചൈതൃഭൂമി സന്ദർശിക്കരുതെന്നു പ്രധാനമന്ത്രി അഭൃർത്ഥിച്ചു ഗോരായിയിലെ ഗ്ലോബൽ പഗോഡയും നാളെ വരെ അടച്ചിടു മെന്നതിനാൽ അവിടെയും സന്ദർശനം അനുവദിക്കില്ല

പാവങ്ങൾക്കൂം സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും എതിരെയുള്ള സാമൂഹിക വിവേചനത്തിന് എതിരെ ശബ്ദമുയർത്തിയ സ്ാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഡോ

ഭരണ്ട് ലടനാ ശില്പിയോടുള്ള ആദരസൂചക മായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അദ്ദേഹത്തിന്റെ ജീവിത ത്തെ ആധാരമാക്കി ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്

അതേസമയം പ്രചാരണസമാപനത്തോടനുബന്ധിച്ച് നടത്താറുള്ള കൊട്ടിക്കലാശം നിർബന്ധമായും ഒഴിവാക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയ്ക്കും വാഹന റാലിക്കും പരമാവധി മൂന്ന് വാഹനങ്ങൾ മാത്രമെ ഉപയോഗിക്കാവു ഇക്കാരൃം ഉറപ്പാക്കുന്നതിന് ഉദ്യോഗസഥർക്ക് നിർദ്ദേശം നൽകിയതായും കമ്മീഷണർ അറിയിച്ചു

കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നി ഹോത്രിയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം ഇന്നലെ ചെന്നൈയിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഷണ്മുഖം മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി

ആഭ്യന്തരം കൂടാതെ കൃഷി ദേശീയ പാത ധനകാര്യം വൈദ്യുതി ഗ്രാമവികസനം മത്സ്യബന്ധനം ജലവിഭവം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സംഘത്തെ പ്രതിനിധീകരിക്കുന്നത്

ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ ല്ലഭിക്കാനുള്ള സാധൃതയുണ്ട്

പെട്രോളിന് രണ്ട് വർഷ്ളത്ത് ഏറ്റവും കൂടി വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന്ത്

എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിന് തുടർച്ചയായ മൂന്നാം തോൽവി ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ജയത്തോടെ നാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് രണ്ടാം സ്ഥാനത്താണ്

സി ഗോവയെ നേരിടും

കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു

ഇത്തരം പരസ്ചൃം നൽകുമ്പോൾ അഡെർടൈസിങ് സ്റ്റാൻഡേർഡ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എല്ലാ സ്വകാര്യ ടിവി ചാനലുകൾക്കും നിർദേശം നൽകി

ഇതിലൂടെ സമ്പന്നരാവാമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും കൌൺസിൽ നിർദേശിക്കുന്നു

രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾക്കുമപ്പുറം നിലനിൽക്കുന്ന സ്ഥാപനമാണ് ആർ

ബി എന്നും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ പേരാണ് സ്ഥാപനത്തിന് നൽകേണ്ടതെന്നും മുഖൃമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു